സംസ്ഥാനത്ത് കോവിഡ് ചികിത്സാ മാർഗ്ഗരേഖ പുതുക്കി പനി ക്ലിനിക്കുകൾ കോവിഡ് ക്ലിനിക്കുകളാക്കും സർക്കാർ ആശുപത്രികൾ കോവിഡ് ചികിത്സയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും

പേർക്ക് ഏറ്റവും കൂടുതൽ ഏറ്റണാകുളം ജില്ലയിൽ

കോവിഡ് വ്യാപന പൃശ്ചാത്തലത്തിൽ പഞ്ചായത്തുകളിൽ ന് വാർഡ്തല സമിതിക്കൾ ശ്ക്തിപ്പെടുത്തും

സഹകരിച്ച് ജനം പൊലീസിന്റെ ഇ പാസ് സംവിധാനം ദുരുപയോഗം ചെയ്യരുതെന്ന് നിർദ്ദേശം

സർക്കാർ ആശുപത്രികൾ കോവിഡ് ചികിത്സയിൽ കേന്ദ്രീകരിക്കുമെന്നും മാർഗ്ഗരേഖയിൽ പറയുന്നു ഗ്രാമപ്രദേശങ്ങളിലടക്കം കോവിഡ് ചികിത്സ എത്തിക്കുകയാണ് ലക്ഷ്യം

സെമി വെന്റിലേറ്റർ സൌകര്യം സജ്ജീകരിക്കാൻ കഴിയുന്ന ആശുപത്രികളിലെല്ലാം ഇവ ഒരുക്കണം

വാർഡ് തല സമിതി കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും വാർഡ്തല സമിതികൾ ശക്തിപ്പെടുത്താൻ പഞ്ചായത്ത് ഡയറക്ടർ നിർദ്ദേശം നൽകി ഗ്രാമപഞ്ചായത്തുകളിൽ നിർദ്ദേശിച്ചതനുസരിച്ചുള്ള വാർഡ്തല സമിതികൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഉറപ്പുവരുത്തണം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലുള്ള ജില്ലകളിലെ പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തി തുടർ നടപടി സ്വീകരിക്കുന്നതിന് പ്രത്യേക ടീം രൂപീകരിക്കും ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ ആവശ്യക്കാർക്ക് ഭക്ഷണം ലഭ്യമാക്കുന്നതിന് പഞ്ചായത്തുകൾ നടപടി സ്വീകരിക്കും

ജെ പി മുതിർന്ന നേതാവ് ഹിമന്ദ ബിശ്വ ശർമ മുഖ്യമന്ത്രിയാകും ഗുവാഹത്തിയിൽ ഇന്നു ചേർന്ന യോഗത്തിലാണ് ഹിമന്ദയെ പാർട്ടി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്

തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഒരാഴ്ചയിലേറെയായി തുടരുക്ക് അനിശ്ചിതത്വത്തിനാണ് ഇതോടെ വിരാമമാകുന്നത് കിയോസ്ക് പൊലീസ് അടിയന്തിരഘട്ടങ്ങളിൽ പ്രാതി നൽകാൻ സ്ത്രീകൾക്ക് മാത്രമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക കിയോസ്ക് സംവിധാനം ഏർപ്പെ ടുത്തുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ

ഘട്ടം ഘട്ടമായി പദ്ധതി മറ്റ് നഗരങ്ങളിലേയ്ക്ക് വ്യാപിപ്പിക്കും മഴ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത

നാളെ കൊല്ലം ജില്ലയിലും ചൊവ്വാഴ്ച ഇടുക്കിയിലുമാണ് യെല്ലോ അലർട്ട്

ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം നെല്ല് സംഭരണത്തിന് അടിയന്തര നടപടിയെടുക്കാൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാരെ ചുമതലപ്പെടുത്തി

കോവിഡ് മഹാമാരിയെ നേരിടുന്നതിന് ആവശ്യമായ വിവിധ പ്രതിരോധ നടപടികൾക്കും സമാശ്വാസ നടപടികൾക്കുമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ സഹായ ധനം വിനിയോഗിക്കാം

ചിലയിടങ്ങളിൽ കൂടുതൽ ആളുകൾ പുറത്തിരങ്ങിയതിനെ തുടർന്ന് പൊലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്

അത്യാവശ്ച്യാത്രകൾക്ക് പൊലീസിന്റെ ഇ പാസ് നിർബന്ധമാക്കിയതോടെ ് നിരത്തുകളിൽ തിരക്ക് കുറയുകയാണ്

പാസിനായുള്ള അപേക്ഷകൾ ഒരു ലക്ഷം കടന്നിരിക്കുകയാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിന്റെ ഭാഗമായി ബി

സി

ജില്ലാ ആർശുപത്രിയിലെ മറ്റെല്ലാ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളെയും പ്രൂല്ക്കാട് ഗവ മെഡിക്കൽ കോളജിലേക്ക് മാറ്റി ക്രമീകരിക്കുക ഓക്സിജൻ പ്ലാന്റ് കൊല്ലം ജില്ലാ ആശുപത്രിയിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും ഓക്സിജൻ പ്ലാൻറും ഓക്സിജൻ കോൺസെൻട്രേറ്ററും സ്ഥാപിക്കാൻ പി എം കെയർ ഫണ്ടിൽ നിന്നും പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എൻ

പ്രേമചന്ദ്രൻ എം

ശൈലജ കെ പി സി അദ്ധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു